എം ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ അഞ്ച് പൊലീസുകാർ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും

ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളായ അഞ്ച് പൊ ലീ സു കാരെ കുറ്റ ക്കാരാണെന്ന് തിരു വനന്തപുരം സി ബി ഐ കോടതി കണ്ടെത്തി ഒന്നാം പ്രതി എ

ഐ ജിത കുമാർ സിവിൽ പൊലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർക്കെ തിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി പറഞ്ഞു വിചാരണ ക്കിടെ മരിച്ച മൂന്നാം പ്രതി സോമനെ കേസിൽ നിന്നൊഴിവാക്കി നാലാം പ്രതി ഡി

പി അജിത് കുമാർ അഞ്ചും ആറും പ്രതികളായ എസ് പിമാരായ ഇ കെ സാബു ഹരിദാസ് എന്നി വർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ശിക്ഷാ പ്രഖ്യാപനം പിന്നീട്

ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മൂന്ന് പൊലീസുകാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണവേളയിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയതിനെ തുടർന്ന് ഉദയകുമാറിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് സിബി ഐക്ക് കൈമാറിയത് ഉദയകുമാർ കൊലക്കേസ് വിധി കേരളത്തിലെ പൊലീസു കാർക്കുള്ള അനുഭവ പാഠമാണെന്ന് മുൻ ഡി

പി ജേക്കബ് പുന്നൂസ് പറഞ്ഞു കോട്ടയം കടുത്തുരുത്തിയ്ക്കടുത്ത് വെള്ളപ്പൊക്ക കെടുതി റിപ്പോർട്ട് ചെയ്ത് മടങ്ങുകയായിരുന്ന സ്വകാര്യ ചനൽ സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു മാതൃഭൂമി ന്യൂസ് പ്രാദേശിക ലേഖകൻ സജിയുടെ മൃതദേഹമാണ് കിട്ടിയത് കാണാതായ ഡ്രൈവർ ബിബിനായി തെര ച്ചിൽ തുടരുകയാണ്

രണ്ട് പേരെ ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു ജലനിരപ്പ് താഴ്ന്നിട്ടും കുട്ടനാട്ടിൽ ദുരിതം തുടരുന്നു പകർച്ച വ്യാധി ഭീഷണിയിലാണ് ജനം നെറ്റ് വർക്ക് സംവിധാനത്തിലെ തകരാർ റേഷൻ വിതരണത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് തലവടി എടത്വ തകഴി പ്രദേശക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകൾ വിട്ട് വീടുകളിലേക്ക് മടങ്ങി എത്തുന്നുണ്ട് മന്ത്രി ജി സുധാകരൻ ദുരിത ബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ് പാടശേഖരങ്ങളിലെ ബണ്ടുകൾ പുനർ നിർമ്മിച്ച് വെള്ളം വറ്റിച്ച് നെൽകൃഷി തുടങ്ങാൻ ചിലയിടങ്ങളിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വെള്ളം കയറി കിടക്കുന്നതിനാൽ റോഡുകളിൽ ഗതാഗതം പുനസ്ഥാപിച്ചിട്ടില്ല വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടനാട്ടിലെ വിവിധ ക്യാമ്പുകളിൽ ആരോഗ്യ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന മെഡി ക്കൽ സംഘം സന്ദർശനം തുടങ്ങി രണ്ട് ഡോക്ടർമാർ നഴ്സു മാർ ഫാർമസിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന അഞ്ചംഗ സംഘമാണ് ക്യാമ്പുകൾ സന്ദർശിക്കുന്നത് ജലനിരപ്പ് കുറയുമ്പോൾ എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യും ജവജീവിതം സാധാ രണ നിലയിലായ ശേഷം കുട്ടനാട്ടുകാർക്ക് സൌജന്യ റേഷൻ വിത രണം ചെയ്യുമെന്ന് ജില്ലാകലക്ടർ അറിയിച്ചു ചരക്കുലോറി സമരം പരിഹരിക്കാൻ മന്ത്രി എ

പ്രശ്നം അടിയന്തരമായി പരി ഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ക രിക്ക് അദ്ദേഹം കത്തയച്ചു സമരം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടാക്കുന്നുവെന്നും വിലക്കയറ്റത്തിന് ഇട യാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ജനതാദൾ എസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രി മാത്യു ടി തോമസ് പാർട്ടി അധ്യക്ഷൻ ദേവഗൌഡയുമായി ഡൽഹിയിൽ ചർച്ച ആരംഭിച്ചു മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് കൃഷ്ണൻകുട്ടി വിഭാഗം ആവർത്തിച്ച് ആവശ്യപ്പെട്ട സാഹചര്യ ത്തിലാണ് പ്രശ്ന പരിഹാരത്തിന് പാർട്ടി കേന്ദ്രനേതൃത്വം നീക്കം തുടങ്ങിയത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള സ്കറിയ തോമസ് വിഭാഗങ്ങളുടെ ലയന നീക്കം പാളി ലയന തീരുമാനം അറിയി ക്കുന്നതിന് ഇരുവിഭാഗവും തിരുവനന്തപുരത്ത് ഇന്ന് നടത്താനി രുന്ന സംയുക്ത വാർത്താസമ്മേളനം മാറ്റിവെച്ചു ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയാണ് ഇരു പാർട്ടികൾക്കുമിടയിൽ തർക്കം ഉടലെടുത്തത് ചെയർമാൻസ്ഥാനം വേണമെന്ന നിലപാടിൽ സ്കറിയ തോമസ് ഉറച്ചുനിൽക്കുകയാണ് അതേസമയം ഈ സ്ഥാനം വിട്ടു കൊടുക്കാൻ പറ്റില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ള അറിയിച്ചു ഇട തുമുന്നണി വികസനം സംബന്ധിച്ച് സുപ്രധാന ചർച്ച മറ്റന്നാൾ ചേരുന്ന എൽ ഡി എഫ് യോഗം നടത്താനിരിക്കെയാണ് കേരള കോൺഗ്രസിലെ സ്കറിയ തോമസ് ആർ ബാലകൃഷ്ണ പിള്ള വിഭാഗങ്ങൾ ലയിക്കാൻ ധാരണയിലെത്തിയത് ഗൾഫ് മേഖലയിലെ വിമാനനിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ നടപടി പിൻവലിക്കുന്നതിന് കേന്ദ്രം ഇടപെടണ മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഭീമമായ വർദ്ധനയാണ് എയർഇന്ത്യ അടിച്ചേൽപ്പിച്ചതെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന് അയച്ച കത്തിൽ മുഖ്യ മന്ത്രി കുറ്റപ്പെടുത്തി സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന രോഗികളുടെ നിരക്കിൽ മാത്രം മൂന്ന് മടങ്ങ് വർദ്ധനയാണ് വരുത്തിയിരിക്കുന്ന തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗൾഫിൽ ജോലിയെടുക്കുന്ന മലയാളിക്ക് നിരക്ക് വർധന താങ്ങാനാവില്ലെന്നും അടിയന്തരമായി ഇടപെടണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചു സ്ട്രെക്ചറിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടി വർധിപ്പിച്ചതിൽ നിന്ന് എയർ ഇന്ത്യ ഗൾഫ് മേഖലയെ ഒഴിവാക്കി ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന വിമാന ങ്ങളിൽ സ്ട്രെക്ചർ ടിക്കറ്റിന് പഴയ നിരക്ക് തന്നെ ഈടാക്കി യാൽ മതിയെന്ന് എയർ ഇന്ത്യ സർക്കുലർ വൃക്തമാക്കി

നിറയെ യാത്രക്കാരു മായി പോകുകയായിരുന്ന സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്ത വരാണ് സെന്റ് തോമസ് മൌണ്ട് റെയിൽവെ സ്റ്റേഷനിൽ അപകട ത്തിൽപ്പെട്ടത്

സ്റ്റേഷനിലെ വേഗപ്പാതയിലേക്ക് ട്രെയിൻ കയറുന്നതിനിടെ സമീപത്തെ തൂണിലിടിച്ച് ഇവർ പുറത്തേക്ക് വീഴുകയായിരുന്നു താജ്മഹലിന്റെ സംരക്ഷണവും പരിപാലനവും സംബന്ധിച്ച ആദ്യ കരട് ദർശനരേഖ ഉത്തർപ്രദേശ് ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു താജ്മഹലിന്റെ പരിസരം പ്താസ്റ്റിക് നിരോധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും സമീ പത്ത് വായുമലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായശാലകൾ അട ച്ചുപൂട്ടണമെന്നും പദ്ധതി രേഖയിൽ നിർദേശമുണ്ട്

പി ഗവൺമെന്റിനെ കോടതി നിശിത മായി വിമർശിച്ചിരുന്നു ലോക്പാൽ നിയമനത്തിന്റെ നിർണ്ണയ സമിതി അംഗങ്ങളെ തീരുമാനിക്കാനായില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ സുപ്രീംകോ ടതി അതൃപ്തി പ്രകടിപ്പിച്ചു ലോക്പാൽ നിയമന കമ്മറ്റി യോഗം ചേർന്നെങ്കിലും നിർണ്ണയ സമിതിയെ നിയോഗിക്കാനായില്ലെന്നാണ് അറ്റോർണി ജനറൽ സുപ്രീംകോടതിയെ അറിയിച്ചത് അടുത്തു തന്നെ മറ്റൊരു യോഗം ചേർന്ന് നിർണ്ണയ സമിതി അംഗങ്ങളെ തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ വിഷയത്തിൽ പുതിയ സത്യവാങ് മൂലം ഉടൻ സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് കേന്ദ്രഗവൺമെന്റിന് നിർദേശം നൽകി പ്രഥമ ലാലിഗ വേൾഡ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മെൽബൺ സിറ്റി എഫ് സി യെ നേരിടും

സ്പാനിഷ് ലീഗ് ക്ലബ് ജിറോണ എഫ് സി യാണ് ടൂർണ മെന്റിലെ മൂന്നാമത്തെ ടീം ഓസ്ട്രേലിയ എ ദക്ഷിണാഫ്രിക്ക എ ടീമുകൾ ഉൾപ്പെട്ട ഏക ദിന പരമ്പരയുടെ ഇന്ത്യൻ എ ടീമിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഇടം നേടി ദുലീപ് ട്രോഫിക്കായ ഇന്ത്യ ബ്ലു ടീമിൽ മലയാളി പേസർ ബേസിൽ തമ്പിയും ഇടം നേടിയിട്ടു ണ്ട് പാലക്കാട് വാളയാറിൽ ചരക്കുലോറി ക്ലീനർ കൊല്ലപ്പെട്ട സംഭ വത്തിൽ ലോറി ഡ്രൈവറെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

ലോറി ക്സീനർ മുബാറക്ക് ബാഷ ഇന്നലെ പുലർച്ചെ കൊല്ല പ്പെട്ട സംഭവത്തിൽ ആദ്യം നൽകിയ മൊഴി ഡ്രൈവർ മാറ്റിയിരു ന്നു ഈ സാഹചര്യത്തിലാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത ത് ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മോഹൻലാൽ പങ്കെ ടുക്കുന്നതിനെതിരായ പരാതിയിൽ താൻ ഒപ്പുവെച്ചിട്ടില്ലെന്ന് നടൻ പ്രകാശ് രാജ് അറിയിച്ചു മോഹൻലാൽ വലിയ പ്രതിഭയാണെന്നും ചടങ്ങിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ ക്ഷണിച്ചതിനെതിരെ എങ്ങനെ പരാതി പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു വിഷയത്തിൽ തന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായ തെന്നും പ്രകാശ് രാജ് അറിയിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചി ത്രമേള ഇന്ന് സമാപിക്കും സമാപന സമ്മേളനത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും മഹരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതക ത്തിൽ അറസ്റ്റിലായ അഞ്ച് പ്രതികളുടെ തിരിച്ചറിയിൽ പരേഡ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്താൻ പൊലീസ് കോടതി യെ സമീപിക്കും

റോഡുകൾ തകർന്നതുമൂലം നാലുകോടിയുടെ നഷ്ടം കണക്കാക്കുന്നു

ബി യുടെ നഷ്ടം മൂന്നുകോടിയിൽ പരം രൂപയാണ്

കണ്ണൂർ ആർ

ഒ അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന ഉടമകളെ നേരിട്ട് കണ്ട് തുക പിരിക്കാൻ നടപടി സ്ഥീകരിച്ചുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു മോട്ടോർ വാഹന കേസുകളിൽ പിഴത്തുക അടക്കാനാ യി അറിയിപ്പ് കിട്ടിയ വാഹന ഉടമകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ ആർ

ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സേവന കേ ന്ദ്രത്തിലോ പിഴത്തുക മുഴുവനും അടച്ച ശേഷം കേസിൽ തീർപ്പുകൽപ്പിക്കുന്നതിനായി റീജിയണൽ ട്രാൻസ് പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെടണം